സന്ദർശനത്തിനായി മോസ്കോയിലേക്ക് ഇന്ത്യ റഷ്യ ബന്ധം ദൃഢമാക്കുന്നതിന് ചർച്ചകൾ നടത്തും

ഭൂചലനങ്ങൾ സംസ്ഥാനത്തിന് എല്ലാ സഹായവും നൽകുമെന്ന് പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും

കൂടുതൽ വിവരങ്ങളുമായി നന്ദന

ഇതോടെ രാജ്യത്ത് രോഗം സ്മിരീകരിച്ചവരുടെ എണ്ണത്തിൽ ഡൽഹി രണ്ടാമതായി

ഡൽഹിയിലെ കണ്ടെയ്ൻമെന്റ് സോണുകൾ നിർണയിക്കുന്നതിൽ ഭേദഗതി വരുത്തണമെന്നും കണ്ടെയ്ൻമെന്റ് സോണുകളിലെ പ്രവർത്തനങ്ങൾ കർശനമായി നിയന്ത്രിക്കുകയും നിരീക്ഷിക്കുകയും വേണമെന്നും ഡോ

കോവിഡ് ബാധിച്ച് മരിക്കുന്ന വൃക്തീര്യും എപ്പോൾ എവിടെ നിന്നാണ് ആശുപത്രിയിലേക്ക് പ്രവേശ്രീപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ വിശകലനം ചെയ്യണമെന്ന് ശ്രീ അമിത് ഷാ ഡൽഹി സർക്കാരിന് നിർദ്ദേശം നൽകി കോവിഡ് ബുദ്ധ് സ്ംബന്ധിച്ച എല്ലാ വിവരങ്ങളും കേന്ദ്ര സർക്കാരിനെ അറിയിക്ക്ണ്മെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

കോർപ്സ് കമാൻഡർ തല ചർച്ചയാണ് നടക്കുന്നത് ഇന്ത്യൻ സൈനൃത്തിലെ മേജർ ജനറൽ തലത്തിലുള്ള സൈനിക ഉദ്യോഗസ്ഥരും ചൈനീസ് സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുക്കുന്നു

പ്രതിരോധ രംഗഭ്ത്ത്യും നയതന്ത്ര മേഖലയിലെയും ഇന്ത്യ റഷ്യ പങ്കാളിത്ത്ക്കു കൂടുതൽ ദൃഢമാക്കുന്നതിന് ചർച്ചകളിലേർപ്പെടുമെന്ന് അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു

ഇന്ത്യ ചൈന അതിർത്തി സംഘർഷഭരിതമായ സാഹചര്യത്തിൽ രാജ്യരക്ഷാ മന്ത്രിയുടെ റഷ്യൻ സന്ദർശനം പ്രാധാന്യം അർഹിക്കുന്നതാണ്

സിങ്ങ് പ്രസ്താവനയിൽ പറഞ്ഞു

വിശദാംശങ്ങളുമായി ആകാശവാണി തിരുച്ചിറപ്പള്ളി വാർത്താവിഭാഗം മേധാവി ഡോ

മിസോറാം മുഖ്യമന്ത്രി സൊറാംതങ്കയുമായി സംസാരിച്ച് സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയെന്നും കേന്ദ്രത്തിന്റെ പൂർണ്ണ സഹായം ഉറപ്പ് നൽകിയെന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു

വ്യാഴാഴ്ച ചംപയ്ക്കടുത്തും ഞായറാഴ്ച വൈകിട്ട് തലസ്ഥാനമായ ഐസ്വാളിനടുത്തും റിക്റ്റർ സ്കേയ്ലിൽ അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ മറ്റു രണ്ട് ഭൂചലനങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനിടെ മിസോറാമിലെ എല്ലാവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു സംസ്ഥാനത്തിന് എല്ലാ സഹായവും കേന്ദ്രം ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ കണക്കെടുപ്പ് നടത്തിവരികയാണ് ഇതുവരെ ആർക്കും ജീവഹാനി സംഭവിച്ചതായി റിപ്പോർട്ടില്ലെന്ന് മൂപ്പോറാം മുഖ്യമന്ത്രി സൊറാംതാങ്ക പറഞ്ഞു

രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം സ്വർണ്ണ വിലയിൽ ഇന്നും വർദ്ധന